ജെ

പാർലമ്മെൻറി ്ബോർഡ് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു

ലക്നൌവിൽ ര ് കാശ്മീരി വൃാപാരികൾ അക്രമത്തിനിരയായ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്ത് ഐകൃവും അഖണ്ഡതയും നിലനിർത്താൻ നടപടി അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സംഭവത്തിൽ സത്വര നടപടി സ്വീകരിച്ച ഉത്തർപ്രദേശ് ഗവൺമെന്റിനെ ശ്രീ

പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം പ്രതിപക്ഷ ക്ട്ക്ഷികളോട് ആവശ്യപ്പെട്ടു ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്നല്ലെ ഉത്തർപ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു

യോഗത്തിലെ ചർച്ചാ വിഷയങ്ങളെക്കുറിച്ച് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിട്ടില്ല

അവശേഷിക്കുന്ന ഒരു സീറ്റിൽ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ മത്സരിക്കും

ഇൻഷുറൻസ് പരിരക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും സമിതി പുറർപ്പിധേയമാക്കും

രാജ്യത്തെ അഭിഭാഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ബൃഹത്തായ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പാക്കുകയാണ് ലക്ഷ്യം അഭിഭാഷകർക്ക് മെഡിക്കൽ പരിരക്ഷ അഭിഭാഷകരുടെ അകാല മരണത്തിന് ശേഷം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പരിരക്ഷ എന്നീ വിഷയങ്ങൾ സമതി പഠനവിധേയമാക്കും മൂന്ന് മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ മനാൻ മിശ്രയും ബാർ കൌൺസിൽ അംഗങ്ങളും മറ്റ് അഭിഭാഷക സംഘടനകളും ഈ മാസം ആദ്യം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ ക അഭിഭാഷകരുടെ ക്ഷേമത്തിനായി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

റായ്ഗുഞ്ചിലേയും മുർഷിദാബാദിലേയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സിറ്റിംഗ് എം

ഐഎം തീരുമാനിച്ചിരിക്കുന്നത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് ഇടതുമുന്നണി നേര്ത്ത് അറിയിച്ചിരുന്നു എന്നാൽ ര ് മണ്ഡലങ്ങളിലെ സ്മിനീാർത്ഥികളെ ഇടതുമുന്നണി ഏപക്ഷീയമായി പ്രഖ്യാപ്പിച്ചുതിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുട് ന്നാണ് സൂചന

തുടർന്ന് വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു ഡൽഹി മെട്രോ റെഡ് ലൈനിന്റെ ഭാഗമായ ദിൽഷാദ് ഗാർഡൻ ഷഹീദ് സ്ഥൽ സെക്ഷൻ ഡൽഹി ഘാസിയാബാദ് മീററ്റ് റീജണൽ റാപിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നീ പദ്ധതികൾ ഇതിലുൾപ്പെടും ഡൽഹി ഗാസിയാബാദ് മീററ്റ് റീജണൽ റാപിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം നഗര അടിസ്ഥാന സൌകര്യ വികസന മേഖലയ്ക്ക് പുതു തലമുറ സംവിധാനങ്ങൾ എത്തിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പ്രതിവർഷം ആയിരത്തി അൻപത് വിദ്യാർത്ഥികൾക്ക് കേന്ദ്രം തൊഴിൽ നൽകും

ഗഡ്കരി ചടങ്ങിൽ പറഞ്ഞു

കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് കാർലോസ് അൽവരാഡോ കിസോഡയുമായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു നടത്തിയ ഉന്നതതല ചർച്ചകൾക്കുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇല്ലായ്മ ചെയ്യാൻ കൂട്ടായ പരിശ്രമം തീവ്രവാദത്തെ അത്യാവശ്യമാണെന്ന് പുൽവാമ ഭീകരാക്രമണം ഒരിക്കൽക്കൂടി തെളിയിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു ഭീകരാക്രമണത്തെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്തു ബയോടെക്നോളജി പുനരുപയോഗ ഊർജ്ജം മരുന്ന് നിർമ്മാണം ബഹിരാകാശം ഇക്കോ ടൂറിസം അക്കാദമിക രംഗത്തെ വിവര കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ചും ഇരു രാജൃങ്ങളും ചർച്ച ചെയ്തു

ഉപരാഷ്ട്രപതിക്ക് കോസ്റ്റാറിക്കയിലെ സമാധാന സർവ്വകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ഈ ആദരവ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് ശ്രീ

വെങ്കയ്യ നായിഡു

സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എഫ്

കല്ലീഫുള്ള അധ്യക്ഷനായ സമിതിയായിരിക്കും കേസിൽ മധ്യസ്ഥത ീവഹിക്കുക

രവിശങ്കർ മുതിർന്ന അഭിഭാഷകനായ ശ്രീറാം പഞ്ചു എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ

നടപടികളിൽ നിന്ന് മാധ്യമങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്താനും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടു ്

ഡൽഹി മുംബൈ എക്സ്പ്രസ്ട്രവേ യാഥാർത്ഥ്യമാകുന്നതോടെ മേവാത് മേഖലയുടെ വിക്ടസ്നം പൂർത്തിയാകുമെന്നും രാജ്യത്തെ വ്യാവസായിക ഭൂപടത്തിൽ മേഖലയ്ക്ക് സുപ്രധാന സ്ഥാനം കൈവരുമെന്നും ശ്രീ

പാതയുടെ നിർമ്മിതി സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവനയാകുമെന്ന് ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേഖലാ സുരക്ഷയും ആഗോള തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു പാകിസ്ഥാൻ ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണയും ചർച്ചാ വിഷയമായി

ഇരുരാജ്യങ്ങളും തമ്മിൽ സാങ്കേതികരംഗത്തും സൈനിക രംഗത്തും സഹകരണം ശക്തമാക്കേ തിന്റെ ആവശ്യകത അദ്ദേഹം ചൂ ിക്കാട്ടി ഏത് വെല്ലുവിളികളെയും നേരിടാൻ രാജ്യത്തെ സൈന്യം സജ്ജമാണെന്ന് കരസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു

കഴിഞ്ഞ രാത്രി നടന്ന കാർട്ടർ ഫൈന്റ്ലീൽ ് ഇന്തൃയുടെ സൈന നെഹ്വാളും കെ

പുരുഷ വിഭാഗത്തിൽ ട്ട്രാം സീഡായ കെ ശ്രീകാന്ത് ഒന്നാം നമ്പർ താരം ജപ്പാന്റെ കെന്റൊ മോമോടോയോടാണ് പരാജയപ്പെട്ടത്

മത്സരത്തിന്റെ ആദ്യ റൌ ിൽ ഇന്ത്യയുടെ മറ്റ് മുൻനിര താരങ്ങൾ പരാജയപ്പെട്ടിരുന്നു